ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയപതാക ഉയർത്തി

പദ്ധതിയ്ക്കായി മൂന്നരല്ക്ഷ് കോടി രൂപ ചെലവിടുമെന്ന് പ്രധാനമന്ത്രി

അസാധ്യമായി ഒന്നുമില്ലെന്ന് കേരളം തെളിയിച്ചിട്ടുണ്ടെന്നും പിണറായി വിജയൻ

വയനാട്ടിലെ പുത്തുമലയിൽ തിരച്ചിൽ തുടരുന്നു റിക്കാർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിപ്പ് തുടരുന്നു

ഡൽഹിയിലും മറ്റ് തന്ത്രപ്രധാന്റ് കേന്ദ്രങ്ങളിലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്

തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയപതാക ഉയർത്തിയശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു പ്രളയം പ്രതിസന്ധിയുണ്ടാക്കിയപ്പോൾ അസാധ്യമായി അദ്ദേഹം

അതേ നിശ്ചയദാർഢ്യം തന്നെ ഇപ്പോഴത്തെ വിഷമാവസ്ഥകളിൽ നിന്ന് കരകയറാൻ കേരളത്തിന് കൈമുതലാകുമെന്നും അദ്ദേഹം പറഞ്ഞു

ഡൽഹി കേരള ഹൌസിൽ ക്യേർള് ഗവൺമെന്റ് പ്രതിനിധി എ

മന്ത്രി കെ

മഴ മാറി തെളിഞ്ഞ അന്തരീക്ഷത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കുചേരാൻ ധാരാളം പൊതുജനങ്ങൾ എത്തി പോലീസ് എക്സൈസ് ഫോറസ്റ്റ് ഗാർഡ്സ് ഫയർ ആന്റ് റസ്ക്യൂ എൻ സി സി സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് ബാന്റ് സംഘങ്ങൾ സ്റ്റുഡൻഡ് പോലീസ് കേഡറ്റ് എന്നീ വിഭാഗങ്ങൾ പരേഡിൽ അണിനിരന്നു കെ രാജു കൊല്ലം പ്രകൃതിദുരന്തങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ ഭൂവിനിയോഗത്തിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഗൌരവത്തോടെ പരിഗണിക്കേണ്ടതുണ്ടെന്നും ഗവൺമെന്റ് ഇക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി കെ രാജു കൊല്ലത്ത് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു

കോഴിക്കോട് വെസ്റ്റ്ഹിൽ വിക്രം മൈതാനിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പതാക ഉയർത്തിയശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി

മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സ്വാതന്ത്രൃദിന പരേഡിൽ അഭിവാദൃം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസന്റ്

വെള്ളക്കെട്ട് കാരണം ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു സമീപജില്ലകളിൽ ഇടവിട്ട് മഴ തുടരുന്നതിനാൽ ആലപ്പുഴയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ശബരിമല ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് അഞ്ചിന് തുറക്കും

മലയാളി ഹാജിമാരുടെ ആദ്യ വിമാനം ഞായറാഴ്ച രാവിലെ എട്ടിന് കരിപ്പൂരിൽ എത്തും അവസാന വിമാനം സെപ്തംബർ രണ്ടിന് എത്തും രണ്ട് ലക്ഷം പേരാണ് ഇന്ത്യയിൽ നിന്നും ഇത്തവണ ഹജ്ജ് കർമ്മങ്ങൾ നടത്തിയത്

സി സി ജനറൽ സെക്രട്ടറി പി രാമകൃഷ്ണന്റെ മൃതദേഹം കണ്ണൂർ പയ്യാമ്പലത്ത് സംസ്കരിച്ചു കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിന് പുറത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ഒട്ടേറെ പേർ ആദരാഞ്ജലി അർപ്പിച്ചു ഡോക്സി ഡേ പ്രളയജലവുമായി സമ്പർക്കമുള്ളവർക്ക് എലിപ്പനി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശനിയാഴ്ച മുതൽ ആറ് ശനിയാഴ്ചകളിൽ ഡോക്സി ഡേ ആയി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആചരിക്കാൻ തീരുമാനിച്ചതായി ആരോഗൃമന്ത്രി കെ

പ്രളയബാധിത ജില്ലകളിലെ ആശുപത്രികൾ ദുരിതാശ്ചാസ ക്യാമ്പുകൾ തിരഞ്ഞെടുക്കപ്പെട്ട പൊത്തുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേകം ഡോക്സി ബൂത്തുകൾ സ്ഥാപിച്ച് ഗുളികകൾ സൌജന്യമായി വിതരണം ചെയ്യും

ഐ സാങ്കേതിക തകരാർ മൂലം എ ടി എമ്മു കളിൽ നിന്ന് പണം ലഭിക്കാതെ വരുന്നത് ഇനി മുതൽ ഉപഭോക്താക്കളുടെ പ്രതിമാസ സൌജന്യ എ ടി എം സേവനങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് ആർ

ടി എം വഴിയുള്ള ബാലൻസ് അന്വേഷണവും പണം കൈമാറ്റവും പ്രതിമാസ സൌജന്യ സേവനങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തരുതെന്നും നിർദ്ദേശമുണ്ട്